ടി നഷ്ടപരിഹാരം അനുവദിച്ചു

ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളക്ക് സീസണിലെ ആദ്യതോൽവി

നികുതി പിരിവിലെ ചില പ്രശ്നങ്ങൾമൂലമാണ് നഷ്ടപരിഹാരം നൽകു ന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ആശ ങ്കപ്പെടേണ്ടതില്ലെന്ന് അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ത്യാ ഇക്കണോമിക് കോൺക്ലേവിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുക്കുകയായി രുന്നു ധനമന്ത്രി പ്രകൃ തിക്ഷോഭങ്ങൾമൂലം ജി

ടി സമർപ്പണത്തിലുണ്ടായ കുറവും ഉപഭോഗത്തിലെ കമ്മിയുമാണ് നികുതി പിരിവിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇതിന് പരിഹാര നടപടികൾ സ്വീകരിച്ചുവരികയാണ്

ടി നിരക്കിൽ ഇളവ് വരുത്തുമെന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

നാളെ ജിഎസ്ടി കൌൺസിൽ യോഗം ചേരാനിരിക്കെയാണ് നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിച്ചത് വരുമാനം വർധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ നാളത്തെ യോഗം ചർച്ച ചെയ്തേക്കും ജിഎസ്ടി വരുമാനം കഴിഞ്ഞ മാസം മുൻ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം വളർച്ച നേടിയതായാണ് റിപ്പോർട്ട് ചില സംഘടനകൾ ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ നേരിടാൻ എല്ലാ നടപടി കളും സ്വീകരിച്ചതായി സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു വാഹനങ്ങൾ തടയാനോ കടകൾ നിർബന്ധിച്ച് അടപ്പിക്കാനോ ആരെയും അനുവദിക്കില്ല

ഹർത്താൽ നിയമ വിരുദ്ധമാണെന്നും നടപടി യുണ്ടാകുമെന്നും ഇന്നലെ ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹൈക്കോടതി നിർദേശ പ്രകാരം മുൻകൂട്ടി നോട്ടീസ് നൽകാത്ത ഹർത്താൽ നിയ മവിരുദ്ധമാണെന്ന് കാണിച്ച് ഇന്നലെ പൊലീസ് സംയുക്ത സമരസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾവഴി ഹർത്താലിന് അനുകൂലമായി പ്രചാരണം നടത്തുന്ന വർക്കെതിരെയും നടപടിയുണ്ടാവും പ്രശ്ന സാധ്യതാ പ്രദേശങ്ങളിൽ എക്സി ക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ സാന്നിധ്യം ഉറപ്പാക്കും ഉച്ചഭാഷിണി ഉപയോഗ ത്തിന് അനുമതി നൽകില്ലെന്നും പൊലീസ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഇന്ന് നടത്തുമെന്ന് അറിയിച്ച പരീക്ഷകളിൽ മാറ്റമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു

രാത്രി യിലും പൊലീസ് പരിശോധന നടത്തി കൊല്ലം കരുനാഗപ്പള്ളിയിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രകടനത്തി നിടെ ആംബുലൻസിന് നേരെ അക്രമമുണ്ടായി ഡ്രൈവർക്കും നഴ്സിനും പരിക്കേറ്റു

എസ് ആർ ടി സി കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ആറ് മണി വരെ എല്ലാ ബസുകളും പതിവുപോലെ സർവീസ് നടത്തിയതായി അധികൃതർ അറിയിച്ചു എന്നാൽ അതിന് ശേഷം ഹർത്താൽ അനുകൂലികളെത്തി ബസുകൾ തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അതേതുടർന്ന് പൊലീസുമായി ചർച്ച നടത്തി വരികയാണെന്നും അധികൃതർ പറഞ്ഞു

ഡി എഫ് ഹർത്താലിനെ അനുകൂലിക്കില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജന റൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ഇന്നത്തെ ഹർത്താൽ ബി ജെ

ഹർത്താൽ ആവശ്യമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി നടത്തുമെന്നും കുഞ്ഞാ ലിക്കുട്ടി മാധ്യമങ്ങളെ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായത് പൊതുവിത രണ രംഗം ശക്തിപ്പെടുത്തിയതു വഴിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ അഭിപ്രായപ്പെട്ടു തിരുവന്തപുരത്ത് സപ്ലൈക്കോ മെട്രോ ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് ഫെയറുകളിൽ അവശ്യസാധനങ്ങളുടെ ലഭ്യതയും ഗുണനിലവാരം ഉറപ്പാ ക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിറഞ്ഞു

മുന്നൂറിലേറെ പോക്സോ കേസുകൾ കെട്ടിക്കിടക്കുന്ന ജില്ലകളിൽ സംസ്ഥാന ഗവൺമെന്റുകൾ രണ്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി നിർദേശിച്ചു നൂറിലധികം പോക്സോ എഫ്ഐആറുകൾ ഉണ്ടെങ്കിൽ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേക കോടതി വേണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ മുൻ നിർദ്ദേശം പോക്സോ കേസുകൾ കുറവായ ജില്ലകളിൽ പ്രത്യേക കോടതികൾക്ക് ബലാ ത്സംഗം ഉൾപ്പെടെ കേസുകൾ പരിഗണിക്കാമെന്നും രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വിവരാവകാശ നിയമത്തിന്റെ ദുരുപയോഗം തടയാൻ മാർഗ്ഗ നിർദേശങ്ങൾ ആവ ശ്യമാണെന്ന് സുപ്രീംകോടതി വിലയിരുത്തി വിവരാവകാശ നിയമത്തെ ഭീഷണിക്ക് ആയുധമായി ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വെളിപ്പെടുത്തി

കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ഒഴിവുകളിൽ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയുടെ പരിഗണനാ വേളയിലായിരുന്നു കോടതി പരാമർശം സർവ്വകലാശാല ഭരണത്തിൽ സജീവമായി ഇടപെടുമെന്ന് ഗവർണർ ആരിഫ് മുഹ മ്മദ് ഖാൻ വ്യക്തമാക്കി ചാൻസലർ റബ്ബർ സ്റ്റാമ്പല്ല വൈസ് ചാൻസലർമാർ ബാഹ്യസമ്മർദ്ധങ്ങൾക്ക് വഴങ്ങാൻ പാടില്ലെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യ മങ്ങളോട് പറഞ്ഞു

നിലവിൽ കരസേനാ ഉപ മേധാവിയായി പ്രവർത്തിച്ചു വരികയാണ് മുകുന്ദ് നരവനെ ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളക്ക് സീസണിലെ ആദ്യ തോൽവി ഇന്നലെ കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിലെ എവേ മത്സരത്തിൽ മോഹൻബ ഗാൻ ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഗോകുലത്തെ പരാജയപ്പെടുത്തി ജനുവരി നാലിന് കോഴിക്കോട്ട് ഐസ്വാൾ എഫ് സിയുമായാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് ബംഗാളിനെ നേരിടും തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളജ് ഗ്രൌണ്ടിലാണ് മത്സരം തൊടുപുഴയിൽ സംസ്ഥാന സീനിയർ സൂപ്പർസോൺ വോളിബോളിൽ എറണാകു ളവും തിരുവനന്തപുരവും ചാമ്പ്യൻമാരായി പുരുഷ വിഭാഗത്തിൽ എറണാ കുളം പത്തനംതിട്ടയെയും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ഇടുക്കി യെയും തോൽപ്പിച്ചു സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ആറാമത് രാജ്യാന്തര മൌണ്ടൻ സൈക്കിളിങ് ചാംപ്യൻഷിപ്പ് വെള്ളിയാഴ്ച വയനാട്ടിൽ ആരംഭി ക്കും മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലാണ് മൂന്ന് ദിവ സത്തെ ചാംപ്യൻഷിപ്പ്

മഹാരാഷ്ട്രയാണ് കേരളത്തെ തോൽപ്പി ച്ചത് ഇന്ന് കേരളം ഒഡീഷയെ നേരിടും ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീ ഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങ് നാളെ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജ യൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഡോ

ടി ജലീൽ അധ്യ ക്ഷനായിരിക്കും കേരളാ ബാങ്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മലപ്പുറം ജില്ലാ സ്ഹകരണ ബാങ്കിന്റെ നിലപാട് പുനപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ മൂന്ന് ദിവസത്തെ സൂചനാ പണിമുടക്ക് ആരംഭിച്ചു വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടണ മെന്നും ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് യൂനിയനും എംപ്ലോയീസ് ഫെഡറേഷനും ആവശ്യപ്പെട്ടു

ഐ ദേശീയ കൌൺസിൽ അംഗം ടി വി ബാലൻ ഉദ്ഘാ ടനം ചെയ്തു ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ സമ്മേളനം ഇന്ന് സമാപിക്കും പതിച്ചു കിട്ടിയ ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവദി ക്കുന്ന വിധത്തിൽ ഭൂപതിവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ന് തിരുവന്തപു രത്ത് ചേരുന്ന സർവ്വകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് മലനാട് കർഷക രക്ഷാ സമിതി കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെ ട്ടു സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെല്ലാം പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുമ്പോൾ ഇടുക്കിയിൽ മാത്രം നിയന്ത്രണം ഏർപ്പെ ടുത്തുന്നത് വിവേചനമാണെന്ന് അവർ കുറ്റപ്പെടുത്തി അറ്റകുറ്റ പണികൾക്കായി ഒരാഴ്ച മുമ്പ് പ്രവർത്തനം നിർത്തിവെച്ച മൂലമറ്റം പവ്വർഹൌസിലെ ജനറേറ്ററുകൾ ഇന്ന് ഘട്ടങ്ങളായി പ്രവർത്തിപ്പിച്ചു തുടങ്ങും